വേനലവധിക്കുശേഷം സംസ്ഥാനത്തെ സ്കൂളുകളും കലാലയങ്ങളും ഇന്നു തുറക്കും

തൃശൂർ ചെമ്പൂ ച്ചിറ ഗവൺ മെന്റ് ്ഹയർസെക്കന്റി സ്കൂളിലാണ് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോ ത്സവം ഉദ്ഘാടനം ചെയ്യും മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും ചടങ്ങിൽ പങ്കെടുക്കും ജില്ലാതല പ്രവേശനോത്സവങ്ങളിൽ മന്ത്രിമാരും മറ്റ് പ്രമുഖരും സംബന്ധിക്കും കോഴിക്കോട്ട് മന്ത്രി ടി

രാമകൃഷ്ണൻ നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പ്രവേശനോത്സവ ത്തിന് തുടക്കം കുറിക്കുന്നത് ഹൈസ്കൂൾ ഹയർസെക്കൻറി ഏകീകരണം നടപ്പിൽ വരുന്ന ആദ്യ അധ്യയനവർഷമായതിനാൽ പ്രതിഷേധങ്ങൾക്കും ഇന്ന് സ്കൂളുകൾ വേദി യാകും പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ പ്രവേശനോത്സവം ബഹി ഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കറുത്ത ബാഡ്ജ് ധരിച്ചായിരിക്കും അധ്യാ പകർ സ്കൂളിലെത്തുക പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സഹകരിക്കേണ്ടതി ല്ലെന്നും അവർ തീരുമാനിച്ചിട്ടുണ്ട്

പാഠപുസ്തകങ്ങളും യൂണിഫോമും ഇതിനകം വിതരണം ചെയ്തുകഴിഞ്ഞു മലപ്പുറം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം എടക്കര ഗവൺമെന്റ് ഹയർസെക്കന്ററി സ്കൂളിൽ പി

അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ് ് ് നിപ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗം ചേരും മന്ത്രി കെ

ശൈലജ ഡോക്ടർമാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഉച്ചകഴിഞ്ഞ് കാക്കനാട് കലക്ട്രേറ്റിലാണ് യോഗം ചേരുന്നത് ഐസൊലേഷൻ വാർഡിൽ കഴിയുന്നവരുടെ രക്തപ രിശോധനാഫലം ഇന്നോ നാളെയോ ലഭിച്ചേക്കും എന്നാൽ ഇവർക്ക് രോഗ ബാധയില്ലെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യവകുപ്പ്

കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു പനി കുറ ഞ്ഞിട്ടുണ്ടെന്നും സ്വയം ആഹാരം കഴിക്കുന്നുണ്ടെന്നും അവർ വെളിപ്പെടു ത്തി ഇന്ന് സംസ്ഥാനത്ത് പുതിയ അധ്യയനവർഷം ആരംഭിക്കുന്നതോടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിപ പ്രതിരോധ ബോധവൽക്കരണപരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിപ ബാധയുടെ ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര സംഘത്തിന്റെ സഹായത്തോടെ ശ്രമം തുടരുകയാണ്

ഡൽഹിയിലെ ഭവിക് ബൻസാലും ഉത്തർപ്രദേശിലെ അക്ഷത് കൌശികും രണ്ടും മൂന്നും റാങ്കുകൾ നേടി

ദേശീയ സുരക്ഷ വിദേശകാര്യം തുടങ്ങിയ വിഷയങ്ങളിൽ നിർണായക തീരുമാന മെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് രാജ്യരക്ഷാ ആഭ്യന്തര വിദേശകാര്യ ധന മന്ത്രിമാർ സമിതിയിൽ അംഗങ്ങളാണ്

നിക്ഷേപവും സാമ്പത്തിക വളർച്ചയും ശക്തിപ്പെടു ത്താൻ രൂപീകരിച്ച അഞ്ചംഗ സമിതിയിൽ അമിത്ഷാ നിർമ്മലാ സീതാരാ മൻ നിതിൻ ഗഡ്കരി പീയുഷ് ഗോയൽ എന്നിവർ അംഗങ്ങളാണ് മറ്റൊരു പത്തംഗ സമിതിയും പ്രധാനമന്ത്രി രൂപീകരിച്ചു തൊഴിലിനും നൈപുണ്യവി കസനത്തിനും വേണ്ടി രൂപീകരിച്ച സമിതിയിൽ കൃഷി മാനവ വിഭവശേ ഷി പെട്രോളിയം മന്ത്രിമാർ സമിതിയിൽ അംഗങ്ങളാണ്

നാവിക വിമാനത്താവളത്തിലിറ ങ്ങുന്ന പ്രധാനമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് തങ്ങുന്നത്

പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഗുരു വായൂരിലും പരിസരപ്രദേശങ്ങളിലും കനത്ത സുരക്ഷഏർപ്പെടുത്തിയിട്ടുണ്ട്

മുരളീധരൻ അർജുൻ റാം മെഘ്വാൾ എന്നിവർക്കൊപ്പ മാണ് അദ്ദേഹം ഗുലാം നബി ആസാദിന്റെ വീട്ടിലെത്തിയത്

ബംഗാ ളിൽ പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയതായും കോൺഗ്രസു മായി സഹകരിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാകുമായിരു ന്നുവെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്നലെ ന്യൂഡൽഹിയിൽ വെളിപ്പെടുത്തിയിരുന്നു ഒരാഴ്ചയോളം വൈകിയ കാലവർഷം ശനിയാഴ്ചയോടെ സംസ്ഥാനത്തെത്തുമെന്ന് കാലാവസ്ഥാവകുപ്പ് ഡൽഹിയിൽ അറിയിച്ചു ഇത്തവണ സാധാരണ അളവിൽ കാലവർഷം ഉണ്ടാകുമെന്നാണ് വകു പ്പിന്റെ വിലയിരുത്തൽ

കട്ടപ്പന സ്വദേശി ജേക്കബ് തോമസാണ് പനിയും ശ്വാസതടസ്സുവും മൂലം മരണമടഞ്ഞത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് സംഭവത്തെകുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു

ഓപ്പണർ രോഹിത് ശർമ്മ നേടിയ സെഞ്ചറിയുടെ കരുത്തിലാണ് ഇന്ത്യ യുടെ ജയം

ഓവലിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാന്റ് ബംഗ്ലാദേശിനെ തോൽപി ച്ചു

ഈ ലോകകപ്പിൽ ന്യൂസി ലാന്റിന്റെ രണ്ടാം ജയമാണിത് ഇന്ന് ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെ നേരിടും

് വിനോദ സഞ്ചാര വകുപ്പിന്റെ ബോട്ട് ലീഗ് മത്സരത്തിന്റെ വേദി കളിലൊന്നായി പിറവത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി കടകം പള്ളി സുരേന്ദ്രൻ അറിയിച്ചു

ഇതോടെ പിറവത്ത് കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാ കുമെന്ന് അദ്ദേഹം പിറവം പാഴൂരിൽ പറഞ്ഞു ആറ്റുതീരം പാർക്ക് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ങ്ങളും കുത്തക കമ്പനികളുമാണെന്ന് മന്ത്രി എം

നാടിന്റെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണം ആവശ്യമാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു

കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതി നശീകരണവും വർദ്ധി ക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിലാണ് പ്രതീക്ഷയെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു കുടിവെളളം വാങ്ങുന്നതുപോലെ പ്രാണ വായുവും വിലകൊടുത്തു വാങ്ങേണ്ട സാഹചര്യം ഇന്ത്യയിലും വന്നേ ക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു കാസർക്കോട് നീലേശ്വരത്ത് ഹയർ സെക്കന്ററി എൻ എസ് എസിന്റെ സംസ്ഥാനതല പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി

് ് ് ് ് ് ് ് ആലപ്പുഴ അർബൻ സഹകരണ ബാങ്കിന്റെ പുതിയ കെട്ടിടം രാവിലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി ജി

് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പുണർതം ചതുശ്ശതം ഇന്ന് നടക്കും ഞായറാഴ്ച മകം കലംവരവോടെ സ്ത്രീകൾക്ക് അക്കെരെ കൊട്ടിയൂരിൽ പ്രവേശനം അവസാനിക്കും

ച്ചറിയണമെന്ന് മന്ത്രി ടി

ഗവൺമെന്റും തദ്ദേശസ്ഥാപനങ്ങളും ശാസ്ത്രീയ മാലിന്യ സംസ്ക രണ പദ്ധതികൾ നടപ്പാക്കിയിട്ടും മാലിന്യ നിർമ്മാർജ്ജനം ഫലവത്തായിട്ടി ല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

ങ്ങൾ തടയുന്ന ദേശീയ ട്രിബ്യൂണലിന്റെ സിറ്റിംഗ് മൂന്നാറിൽ ആരംഭിച്ചു

പൊതുജനങ്ങൾക്ക് മൊഴിയും തെളിവു കളും ഇന്നും സിറ്റിംഗിൽ നൽകാവുന്നതാണ് നിലമ്പൂരിനടുത്ത് മിന്നലേറ്റ് ഒരാൾ മരിച്ചു

ചോക്കാട് സ്വദേശി മോഹനനാണ് മരിച്ചത്

ഇതിന്റെ ഭാഗമായി എന്യൂമറേ റ്റർമാർക്കും ട്രെയിനർമാർക്കും പരിശീലനം പൂർത്തിയായി വരികയാണ് രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലെയും സാമ്പത്തിക സാഹചര്യങ്ങൾ കണ ക്കെടുപ്പിൽ ഉൾപ്പെടുത്തും